കാസർകോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്

കോവിഡ് പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദേശിച്ച കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഉച്ചയ്ക്ക് രണ്ടു മുതൽ അഞ്ചു വരെയാണ് പരീക്ഷ

തിരക്ക് ഒഴിവാക്കാൻ ഓരോ വിദ്യാർത്ഥിക്കും പരീക്ഷാ ഹാളിലെത്താൻ പ്രത്യേക സമയക്രമം നിശ്ചയിച്ചു നൽകിയിട്ടുണ്ടെന്നും സമയക്രമം കർശനമായി പാലിക്കണമെന്നും അധിക്യതർ അറിയിച്ചു ദേദ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കുട്ടികളുടെ കൂടെ ഒരാളിൽ കൂടുതൽ വരരുതെന്നും പരീക്ഷ കേന്ദ്രത്തിന്റെ പരിസരത്ത് കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലെന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് രുമ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം മൂവായിരത്തിൽ താഴെ എത്തിയെങ്കിലും തിരുവനന്തപുരത്ത് രോഗബാധയ്ക്ക് കുറവില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വലിയങ്ങാടി വാർഡിനെ മൈക്രോ കണ്ടയ്മെൻറ് സോണായി പ്രഖ്യാപിച്ചു സെൻട്രൽ മാർക്കറ്റ് അടച്ചു മാർക്കറ്റ് അണുവിമുക്തമാക്കും പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ഒരാഴ്ചക്കകം പരിശോധന നടത്തുമെന്നും കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി

പ്രേമചന്ദ്രൻ എം

യുടെ ഡ്രൈവർക്ക് കൊവിഡ് സ്ഥിരീകരിച്ചു

പിയുടെ കൊല്ലത്തെ ഓഫീസ് അടച്ചു പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഭാര്യയോടൊപ്പം ഡൽഹിയിലെ വസതിയിൽ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു രുര വയനാട് ജില്ലയിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത വാളാട് ക്ലസ്റ്റർ പൂർണമായും രോഗമുക്തമായി വാളാട് പ്രാഥമികാരോഗ്യകേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആരോഗ്യപ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്തിന്റെയും പോലീസിന്റെയും ആശ അംഗൻവാടി പ്രവർത്തകരുടെയും ദ്രുതകർമ്മ സേന പ്രവർത്തകരുടേയും സംയുക്ത പ്രവർത്തന ഫലമായാണ് ഈ ലക്ഷ്യം കൈവരിച്ചത് രുമ കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കല്ല്യാശ്ശേരി കണ്ണപുരം ചെറുകുന്ന് ഗ്രാമ പഞ്ചായത്തുകൾ ഞായറാഴ്ചകളിൽ പൂർണ്ണമായും അടച്ചിടും രുദ കോവിഡ് സാഹചര്യത്തിൽ അണുനശീകരണത്തിനായി കേന്ദ്ര രാസവള മന്ത്രാലയത്തിനു കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെസ്റ്റിസൈഡ് ഫോമുലേഷൻ ടെക്നോളജി രണ്ട് നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചു

രുമ മരുന്ന് കുത്തിവെച്ച ആൾക്ക് അജ്ഞാതരോഗം ബാധിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ച കോവിഡ് വാക്സിൻ പരീക്ഷണം പുനഃരാരംഭിച്ചു

രുമ കോവിഡ് വാക്സിന്റെ ഇന്ത്യയിലെ മൂന്നാം ഘട്ട പരീക്ഷണം പുനഃരാരംഭിക്കാൻ തയ്യാറാണെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു

രുമ കോവിഡ് വൈറസുകളുടെ കേരളത്തിലെ ഉത്ഭവവും വ്യാപനവും സംബന്ധമായി നടന്നു വരുന്ന ജനിതക ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ആദ്യ പഠന റിപ്പോർട്ട് പുറത്തു വന്നു

അതിശക്തമായ മഴ കണക്കിലെടുത്ത് കാസർകോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് ഇന്ന് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു

രുദ കാസർകോട് ജില്ലയിലെ ബളാൽ രാജപുരം റോഡിൽ കോട്ടക്കുന്നിൽ ഉരുൾപൊട്ടി

ജില്ലയിൽ മൂന്ന് ദിവസമായി കനത്തമഴ തുടരുകയാണ്

താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളകെട്ടുണ്ട് കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് നെൽവയൽ വെള്ളത്തിലായി

ആലപ്പുഴ ജില്ലയിൽ പമ്പാനദിയുടെ തീരത്തു കഴിയുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കലക്ടർ പറഞ്ഞു ദരര പെരിങ്ങൽകുത്ത് അണക്കെട്ടിന്റെ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നതിനായി നാല് ഷട്ടറുകൾ ഏഴ് അടി വീതം തുറന്നെങ്കിലും മഴ മൂലം സ്വാഭാവിക നീരൊഴുക്ക് വർധിച്ചിട്ടില്ലാത്തതിനാൽ ചാലക്കുടിപ്പുഴയുടെ സമീപവാസികൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് തൃശൂർ ജില്ലാ കലക്ടർ എസ്

ഇതുമൂലം പുറത്തേക്ക് ഒഴുക്കുന്ന ജലം പുഴയിലെ ജലനിരപ്പ് കാര്യമായി ഉയർത്തില്ലെന്നും അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു

കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ മടവീഴ്ച പരിഹരിച്ച് പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കാൻ ഈ തുക ഉപയോഗിക്കും എന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു രേര സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ നിർമ്മിച്ച പഞ്ചായത്തെന്ന പദവി തിരുവനന്തപുരം ജില്ലയിലെ കരവാരം ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കി

ഹരിതകേരളം മിഷൻ എക്സിക്യുട്ടീവ് വൈസ് ചെയർപേഴ്സൺ ടി എൻ സീമ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി രദേ കലാ സാഹിത്യ വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രതിഭാധനരായിരുന്ന മൂന്ന് പേരുടെ സ്മാരക നിർമാണത്തിന് ഇന്ന് പാലക്കാട്ട് തുടക്കം കുറിക്കും മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ എ

ബാലൻ എന്നിവർ ഉദ്ഘാടനം നിർവഹിക്കും

ഇടുക്കി കട്ടപ്പനയിൽ കുടുംബശ്രീ ബസാറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രുമ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും കേരള ദിനേശ് ബീഡി കേന്ദ്ര സംഘം മുൻ ഡയറക്ടറുമായ പൂക്കോടൻ ചന്ദ്രൻ നിര്യാതനായി

പൂക്കോടൻ ചന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അനുശോചിച്ചു